കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ റെസ്റ്റോറന്റുകൾ തുറക്കില്ല

പാലക്കാട് ജില്ലയിൽ ഹോട്ടലുകൾ തുറന്നു താമസ സൌകര്യം നൽകുന്ന ഹോട്ടലുകൾ എല്ലാ ജില്ലകളിലും തുറക്കും

കെ

ആലപ്പുഴ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു